ത്തുന്നതിന് ഇന്ത്യയും റഷ്യയും എതിരാണെന്ന് പ്രധാനമ്യന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ സ്വദേശികളായ രണ്ട് ഭീകരരെ സൈന്യം പിടികൂടി നിയുക്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാവിലെ തിരുവനന്തപുര ത്തെത്തും സത്യപ്രതിജ്ഞ നാളെ പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശപത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് യു ഡി എഫ് കൺവൻഷൻ ഉച്ചകഴിഞ്ഞ് ചേരും സംസ്ഥാനത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒരു പരി ധിവരെ മനുഷ്യനിർമ്മിതമാണെന്ന് മാധവ് ഗാഡ്ഗിൽ ഇന്ന് ദേശീയ അധ്യാപകദിനം

രാഷ്ട്രങ്ങളുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ബാഹ്യശക്തികൾ സാധീനം ചെലു ത്തുന്നതിന് ഇന്ത്യയും റഷ്യയും എതിരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറ ഞ്ഞു

ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്തുനിന്നാണ് ജമ്മു കശ്മീരിന്റെ പദവിയിൽ മാറ്റം വരുത്തിയതെന്ന് റഷ്യ അഭിപ്രായപ്പെട്ടു

് ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ സ്വദേശികളായ രണ്ട് ലഷ്കർ എ തൊയ്ബ ഭീകരരെ സൈന്യം പിടികൂടി ഇന്ത്യ പാക് അതിർത്തിയിലാണ് ഖലീൽ അഹമ്മദ് കയാൻ മുഹമ്മദ് നസീം എന്നിവരെ അറസ്റ്റ് ചെയ്തത് പാക് സൈന്യ ത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇന്ത്യയിൽ അക്രമം നടത്തി സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും പിടിയിലായവർ അറിയിച്ചതായി ഔദ്യോഗികകേന്ദ്രങ്ങൾ ശ്രീനഗറിൽ പറഞ്ഞു

് ചെറുകിട വായ്പകളുടെ പലിശ നിരക്ക് അടുത്തമാസം ഒന്നു മുതൽ റിപ്പോ നിരക്ക്പോലെ അടിസ്ഥാന നിരക്കുകളായി ബന്ധിപ്പിക്കണമെന്ന് റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി ഇതോടെ ഭവന വാഹന വൃക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയും

എയർ ഇന്ത്യ വിമാനത്തിലെത്തുന്ന അദ്ദേഹത്തെ ഗവൺമെന്റ് പ്രതിനിധികൾ സ്വീകരിക്കും

അതിനിടെ സ്ഥാനമൊഴിഞ്ഞ ഗവർണർ പി സദാശിവം സ്വദേശമായ തമിഴ്നാട്ടിലെ ഈറോഡിലേക്ക് മടങ്ങി തിരുവനന്ത പുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി പൊലീസ് പരേ ഡിൽ അഭിവാദ്യം സ്വീകരിച്ചശേഷമാണ് ഗവർണർ യാത്ര തിരിച്ചത് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അദ്ദേഹത്തെ യാത്രയയ്ക്കാൻ എത്തിയിരു ന്നു നേരത്തെ രാജ്ഭവനിലും പി

ജനങ്ങ ളുടെ കൂട്ടായ്മയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുന്നതെന്ന് സദാ ശിവം പറഞ്ഞു സുപ്രീം കോടതി വിധി എന്തായാലും അത് നടപ്പാക്കാൻ ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ടെന്ന് പിന്നീട് വാർത്താലേഖകരുമായി സംസാ രിക്കവെ സദാശിവം അഭിപ്രായപ്പെട്ടു

മറ്റന്നാളാണ് പത്രിക പിൻവലിക്കാൻ അവസാന ദിവസം അതിനിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ രണ്ടില ലഭിക്കുന്നത് സംബന്ധിച്ച് അനിശ്ചി തത്വം തുടരുകയാണ് ചിഹ്നം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് പി

പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാ ടനം ചെയ്യും യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കും എൻ ഡി എ സ്ഥാനാർത്ഥി യുടെ നിയോജകമണ്ഡലം കൺവൻഷൻ ഞായറാഴ്ച നടക്കും പാലാ ഉപതിരഞ്ഞെടുപ്പു കഴിയുന്നതോടെ യു ഡി എഫ് തകർന്നടി യുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് മുന്നേറ്റം ഇടതുമുന്നണി ഗവൺമെന്റിന് താക്കീതാണെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

എ മജീദ് പറഞ്ഞു

എഫിന് ലഭിച്ചത് സാധാരണക്കാരുടെ ഭരണ വിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലി ച്ചതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു സംസ്ഥാനത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒരു പരിധിവരെ മനുഷ്യനിർമിതമാ ണെന്ന് പരിസ്ഥിതി വിദഗ്ദ്ധൻ മാധവ് ഗാഡ്ഗിൽ അഭിപ്രായപ്പെട്ടു

കോട്ടക്കൽ എംകെആർ ഫൌണ്ടേഷന്റെ കർമ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു മാധവ് ഗാഡ്ഗിൽ പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം നൽകി മണൽ ക്വാറി മാഫിയകളെ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രകൃതി സൌഹാർദപരമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റുകൾ മുന്നിട്ടിറങ്ങണമെന്നും ഗാഡ്ഗിൽ പറഞ്ഞു എം ടി വാസുദേവൻ നായർ പുരസ്കാരം മാധവ് ഗാഡ്ഗിലിന് സമ്മാനിച്ചു

അതിശക്തമായ മഴ കണക്കിലെടുത്ത് ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടായിരിക്കും

കണ്ണൂർ വിമാന താവള പ്രദേശത്ത് നിന്ന് വെള്ളം കുത്തിയൊലിച്ച് സമീപ പ്രദേശങ്ങളിൽ നാശനഷ്ടമുണ്ടായി പത്തേക്കറോളം കൃഷിഭൂമി വെള്ളത്തിൽ മുങ്ങി

തുടർന്ന് പല പ്രദേശങ്ങളും ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചിലിന്റെയും ഭീഷണി യിലായി ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റും വീശുന്നുണ്ട് മലമുകളിൽ വിള്ള ലുണ്ടായ മുട്ടുകാട് വ്യാപകമായി ഉരുൾപൊട്ടലുണ്ടായ പന്നിയാർകൂട്ടി നെടുങ്കണ്ടം പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രതയോടെയാണ് വീടുകളിൽ കഴിയുന്നത് ഇക്കാ നഗർ കോളനി ഉൾപ്പെടെ ടൌണിലെ വിവിധ ഭാഗങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്

കൂടുതൽ ജലമൊഴുക്കി വിടുന്ന സാഹചര്യത്തിൽ നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും നദിയിലിറങ്ങുന്നവരും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി

നെയ്യാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ് ഇന്ന് ദേശീയ അധ്യാപകദിനം

വിദ്യാഭ്യാസ വിചക്ഷണനും അധ്യാപകനും തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവ്വെപള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപകദിനമായി ആചരിക്കുന്ന ത് ഇതോടനുബന്ധിച്ച് പൊതുയോഗങ്ങളും ചർച്ചാസമ്മേളനങ്ങളും ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ഓണ വിപണികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും കൃഷിഭവനു കൾ ഹോർട്ടികോർപ് വി

ഇവ ചൊവ്വാഴ്ച വരെ പ്രവർത്തിക്കും ഓണക്കാലത്തെ വർദ്ധിച്ച പാൽ ഉപഭോഗവും ആവശ്യകതയും കണക്കിലെടുത്ത് ഊർജിത പാൽ പരിശോധന പരിപാടി കോഴിക്കോട്ട് ഇന്ന് ജില്ലാ കലക്ടർ സാംബശിവ റാവു ഉദ്ഘാടനം ചെയ്യും

മിടുന്നതെന്ന് മന്ത്രി ഇ

നിലവിലെ ഹോം സ്റ്റേഷനോടൊപ്പം പുതിയ പവർ സ്റ്റേഷൻ തുടങ്ങി രാത്രിയിലും പ്രവർത്തിപ്പിച്ചാൽ വൈദ്യുതി ക്ഷാമം പൂർണമായും പരിഹരിക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു ആലപ്പുഴ എരമല്ലൂർ സബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് മലപ്പുറം കോട്ടയ്ക്കലിൽ നടക്കും ഇന്നലെ വൈകീട്ട് ചങ്കുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

കോട്ടയ്ക്കൽ നാട്യസംഘത്തിന്റെ പ്രിൻസിപ്പലായ ചന്ദ്രശേഖര വാര്യർക്ക് കേന്ദ്ര നാടക അക്കാദമി അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് സംസ്ഥാന കഥകളി പുരസ്കാരം എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ ബഹുമ തികൾ ലഭിച്ചിട്ടുണ്ട്

കഥാപാത്രത്തെ കൃത്യമായി ഉൾക്കൊണ്ട് അവത രിപ്പിക്കാൻ അദ്ദേഹത്തിന് നൈപുണ്യമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുശോ ചന സന്ദേശത്തിൽ പറഞ്ഞു

നിർമ്മാണശാലയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കൂടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്

കോഴിക്കോട് വെണ്ണക്കോട് സ്വദേശി മുഹമ്മദ് ഹനാൻ വയനാട് വെള്ളമുണ്ടയിലെ അബ്ദുളള എന്നിവരാണ് മരിച്ചത് കുറ്റ്യാടി സിറാ ജുൽഹുദ കോളേജ് വിദ്യാർത്ഥികളായ ഇവർ പഠനത്തിന്റെ ഭാഗമായി സാമൂഹിക സർവ്വെയ്ക്ക് പോയതായിരുന്നു ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു

കോർപറേഷൻ ഓഫീസ് കോമ്പൌണ്ടിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ ടി